എം കെ അധ്യക്ഷൻ എം കരുണാനിധിയുടെ ആരോഗ്യൂനില മോശമായി തുടരു ന്നു ഇടതുമുന്നണി വിപുലീകരണത്തിൽ സമവായമുണ്ടായ ശേഷം തീരുമാനമെടുക്കു മെന്ന് എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ

ടി കൌൺസിൽ തീരു മാനം ഇന്ന് നിലവിൽ വരും

സാനിട്ടറി നാപ്കിനെ ജി

ടിയിൽ നിന്ന് ഒഴിവാക്കിയെ ങ്കിലും നികുതിയുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക പ്രശ്നങ്ങൾമൂലം വില കൂടിയേ ക്കുമെന്നാണ് നിർമാതാക്കളുടെ പ്രതികരണം എന്നാൽ ഇക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്താൻ ധനമന്ത്രി പിയൂഷ്ഗോയൽ ഉദ്യോഗസ്ഥർക്ക് നിർദേശം നൽകി നികുതിയിളവിന്റെ ആനുകൂല്യം ഉപഭോക്താക്കളിൽ എത്തണമെന്ന് അദ്ദേഹം പ്രത്യേകം നിർദേശം നൽകി

കെ അധ്യക്ഷൻ എം കരുണാനിധിയുടെ ആരോഗൃനില വളരെ മോശമായി തുടരുകയാണെന്ന് ചെന്നൈ കാവേരി ആശുപത്രി മെഡിക്കൽ ബുള്ളിറ്റിനിൽ അറി യിച്ചു ഗോപാലപുരത്തെ വീട്ടിൽ സംവിധാനങ്ങളൊരുക്കിയാണ് കരുണാനിധിയെ ചികിത്സിക്കുന്നത് കടുത്ത പനിയും അണുബാധയും മൂലമാണ് ആരോഗ്യനില വഷ ളായതെന്ന് മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു ഇടത് മുന്നണിയുമായി സഹകരിച്ചു നിൽക്കുന്നവരെ എൽ ഡി എഫിന്റെ ഭാഗമാ ക്കുന്ന കാര്യത്തിൽ ഒരിക്കൽകൂടി ചർച്ച നടത്താൻ തിരുവനന്തപുരത്ത് ഇന്നലെ ചേർന്ന നേതൃയോഗം തീരുമാനിച്ചു ഒമ്പത് പാർട്ടികൾ ഇടതുമുന്നണിയുമായി സഹ കരിക്കുന്നുണ്ട് കേരള കോൺഗ്രസ് ബി സ്കറിയ തോമസ് വിഭാഗം എന്നിവ ഒന്നി ക്കാൻ തീരുമാനിച്ചെങ്കിലും തർക്കത്തെതുടർന്ന് ലയനം വൈകിയ സാഹചര്യത്തിലാണ് വിഷയം വീണ്ടും ചർച്ച ചെയ്യാൻ എൽ ഡി

മുന്നണിക്കുള്ളിൽ സമവായം ഉണ്ടായ ശേഷം വിപുലീകരണത്തിൽ തീരുമാനമെടുക്കുമെന്ന് കൺവീ നർ എ വിജയരാഘവൻ അറിയിച്ചു ് കുമ്പസാരം നിരോധിക്കണമെന്ന ദേശീയ വനിത കമ്മിഷന്റെ അഭിപ്രായം അതിരുക ടന്ന സ്ത്രീപക്ഷ ചിന്തയാണെന്ന് ന്യൂനപക്ഷ കമ്മിഷൻ വൈസ്ചെയർമാൻ ജോർജ് കുര്യൻ തിരുവനന്തപുരത്ത് അഭിപ്രായപ്പെട്ടു വനിത കമ്മിഷൻ അധ്യക്ഷ രേഖാശർമ യുടെ അഭിപ്രായത്തോട് യോജിപ്പില്ലെന്നും കുമ്പസാരം നിരോധിക്കുകയെന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇതിനെ ്എന്തുവില കൊടുത്തും തടയുമെന്നും അദ്ദേഹം പറഞ്ഞു കുമ്പസാരം കൂദാശയാണെന്നും ഭരണഘടനാ അവകാശം ചോദ്യം ചെയ്യരുതെന്നും കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമ്മീസ് ബാവ പറഞ്ഞു ദേശീയ വനിതാ കമ്മിഷൻ ക്രൈസ്തവസഭയുടെ വിശ്ചാസൃതയെയും കെട്ടുരപ്പിനെയും തകർക്കാനാണ് ശ്രമിക്കുന്നതെന്ന് കെ

സി വക്താവ് ഫാദർ വർഗീസും കുറ്റ പ്പെടുത്തി ് ് കുമ്പസാരം നിർത്തണമെന്ന ദേശീയ വനിതാ കമ്മിഷന്റെ അഭിപ്രായം ക്രൈസ്തവ പീഡന ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് കത്തോലിക്കാ കോൺഗ്രസ് കുറ്റപ്പെടു ത്തി ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ കുമ്പസാരം നിരോധിക്കണമെന്ന നിർദേശം ഭര ണഘടനാ ലംഘനവും വിശ്വാസത്തിനെതിരായ വെല്ലുവിളിയുമാണെന്ന് കത്തോലിക്കാ കോൺഗ്രസ് ഗ്ലോബൽ സമിതി പ്രസിഡന്റ് ബിജു പറയന്നിലം പറഞ്ഞു ് ് ് ് ് ് വിദ്യാഭ്യാസത്തിന്റെ പരമധർമ്മം രാഷ്ട്രസേവനമാണെന്ന് മിസോറാം ഗവർണർ കുമ്മ നം രാജശേഖരൻ അഭിപ്രായപ്പെട്ടു മലാപ്പറമ്പ് വേദവ്യാസ വിദ്യാലയത്തിൽ കാർ ഗിൽ രക്തസാക്ഷിദിനാചരണത്തിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അ ദ്ദേഹം സ്നേഹവും കരുണയും പങ്കുവെക്കലും വിദ്യാലയങ്ങളിൽ നിന്ന് കുട്ടികൾ അഭ്യസിക്കണമെന്ന് കുമ്മനം രാജശേഖരൻ നിർദേശിച്ചു

നികുതി ദായകരിൽ നിന്നും നികുതി വിദഗ്ധരിൽ നിന്നും ഉയർന്ന ആവശൃം പരിഗണിച്ചാണ് നടപടിയെന്ന് ധനമന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു ് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ദൈർഘ്യമേറിയ പൂർണ ചന്ദ്രഗ്രഹണം ഇന്ന്

രാത്രി ഒരു മണിയോടെയാണ് പൂർണഗ്രഹണം കേരളം ഉൾപെടെ രാജ്യത്ത് എല്ലായിടത്തും ചന്ദ്രഗ്രഹണം കാണാൻ കഴിയും

സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഹനാ നെതിരെ പ്രചാരണം നടത്തിയവരെ കണ്ണന്താനം നിശിതമായി വിമർശിച്ചു ജോഹന്നാസ്ബർഗിലെ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി നരേ ന്ദ്രേമോദി ഇന്നലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുച്ചിനുമായി കൂടിക്കാഴ്ച നട ത്തി ഇരുരാഷ്ട്രങ്ങൾക്കുമിടയിലെ അടിയുറച്ച ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ കൂടിക്കാഴ്ച സഹായിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങുമായി ഇന്നലെ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരു ന്നു മൂന്ന് മാസത്തിനിടെ മൂന്നാം തവണയാണ് അദ്ദേഹം ജിൻ പിങ്ങുമായി സംഭാ ഷണം നടത്തുന്നത് ഇന്ത്യാ ചൈന ബന്ധങ്ങൾക്ക് പുതിയ ശക്തിനൽകാനും ഉഭയ കക്ഷി സഹകരണം മെച്ചപ്പെടുത്താനും കൂടിക്കാഴ്ച സഹായിച്ചതായി മോദി ട്വിറ്ററിൽ കുറിച്ചു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലിനെ പ്രത്യേക പ്രതിനിധിതല ചർച്ചയിൽ പങ്കെടുക്കാൻ ചൈനയിലേക്ക് അയക്കാൻ കൂടിക്കാഴ്ചയിൽ നരേന്ദ്രമോദി സന്നദ്ധത അറിയിച്ചതായി വിദേശകാര്യ സെക്രട്ടറി വിജയ്ഗോഖലെ അറിയിച്ചു അർജന്റീ ന അങ്കോള പ്രസിഡന്റുമാരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ് ് ് ് ് ് ് ് വെള്ളപ്പൊക്കത്തെ തുടർന്ന് കുട്ടനാട് താലൂക്കിൽ പ്രൊഫഷണൽ കോളജ് ഉൾപ്പെ ടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ആലപ്പുഴ ജില്ലാ കലക്ടർ ഇന്നും അവധി പ്രഖ്യാ പിച്ചു മഴ കുറഞ്ഞെങ്കിലും കിഴക്കൻ മലവെള്ളത്തിന്റെ വരവ് തുടരുന്നതിനാൽ കു ട്ടനാട്ടിലെ ജലനിരപ്പിൽ മാറ്റമില്ല ആലപ്പുഴ കോട്ടയം ജില്ലകൾ വെള്ളപ്പൊക്കബാധിത പ്രദേശങ്ങളായി പ്രഖ്യാപിക്കാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തീരുമാനി ച്ചിട്ടുണ്ട്

മഴയും നീരൊഴുക്കും ഇപ്പോഴത്തെ രീതിയിൽ തുടർന്നാൽ ഏതാനും ദിവസങ്ങൾക്ക കം ഇടുക്കി ഡാം തുറക്കേണ്ടി വരുമെന്ന് ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ റിപ്പോർട്ട് ചെയ്തു വൈദ്യുതി ബോർഡ് ഇതിന് തയാറെടുപ്പ് തുടങ്ങി

ഇടുക്കി അണക്കെട്ടിന്റെ ഭാഗമായ ചെറുതോണി ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയായി രിക്കും ജലനിരപ്പ് നിയന്ത്രിക്കുക

് ് ് ് ് ് ് പമ്പാഡാമിലെ ജലനിരപ്പ് ഉയർന്നതിനാൽ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാൻ സാധൃത യുണ്ടെന്നും തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും പത്തനംതിട്ട ജില്ലാ കലക്ടർ അറിയിച്ചു ് ് ഇടമലയാർ അണക്കെട്ടിലെ ജലനിരപ്പ് സംബ്ന്ധിച്ച് ഭയ്ക്കേണ്ട സാഹചര്യമില്ലെന്ന് എറണാകുളം ജില്ലാ കലക്ടർ മുഹമ്ദ് വൈ സഫീറുള്ള പറഞ്ഞു മൂന്ന് മുന്നറിയിപ്പു കൾ നൽകിയ ശേഷമേ അണക്കെട്ട് തുറക്കു

ലോറിസമരം ഒരാഴ്ച പിന്നിട്ടതോടെ സംസ്ഥാനത്ത് പച്ചക്കറി വില കുത്തനെ ഉയർന്നു പച്ചമുളക് തക്കാളി കാരറ്റ് ഉള്ളി ഉൾപെടെ എല്ലാ പച്ചക്കറി ഇനങ്ങൾക്കും കിലോ യ്ക്ക് പത്തുരൂപ മുതൽ വില വർധനവുണ്ടായി

് ് ് ് ് ് ് ് ് ലണ്ടനിൽ വനിതകളുടെ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ അയർലന്റിനോട് മറുപടിയി ല്ലാത്ത ഒരു ഗോളിന് തോറ്റു

പരാജയത്തോടെ ഇന്ത്യയുടെ കാർട്ടർ ഫൈനൽ സാധ്യത മങ്ങി മുന്നാമത് സംസ്ഥാന യോഗ ചാംപ്യൻഷിപ്പ് നാളെ കണ്ണൂരിൽ ആരംഭിക്കും ആറിന ങ്ങളിലാണ് മത്സരം

നാലെ രാവിലെ മുണ്ട യാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി എ സി മൊയ്തീൻ ചാംപ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും

ഹിതകരമല്ലാത്ത കാര്യങ്ങൾ പറയു ന്നവരെ ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കാൻ ചിലഭാഗത്ത് നിന്ന് നീക്കമുണ്ടാകുന്നു ഐതിഹൃങ്ങളെയും കെട്ടുകഥകളെയും മിത്തുകളെയും ചരിത്രമായി വരുത്തി ത്തീർക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു കേരള ലളിതകലാ അക്കാദമിയുടെ അവാർഡുകൾ വിതരണം ചെയ്യുകയായിരുന്നു മുഖ്യമ ന്ത്രി വൈവിധ്യമാർഗങ്ങളിലൂടെ കർഷകർക്ക് മികച്ച വരുമാനം ലഭ്യമാക്കാൻ ഗവൺമെന്റ് നടപടിയെടുത്തുവരികയാണെന്ന് മന്ത്രി വി

വെജിറ്റ ബിൾ ആൻഡ് ഫ്രൂട്സ് പ്രമോഷൻ കൌൺസിൽ സംഘടിപ്പിച്ച സംഗമം ഇടുക്കി തോപ്രാംകുടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഫോർട്ടുകൊച്ചിയിൽ ചീനവലകളുടെ നവീകരണ പ്രവൃത്തി മന്ത്രി കടകംപള്ളി സുരേ ന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഫോർട്ടുകൊച്ചിയുടെ മുഖമുദ്രയായ ചീനവലകളുടെ സംര ക്ഷണം സംസ്കാരത്തിന്റെ സംരക്ഷണമാണെന്ന് അദ്ദേഹം പറഞ്ഞു വിനോദ സഞ്ചാര വകുപ്പ് ഒന്നരക്കോടി രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചിരുന്നത്

് ് ് ് ് ് ് അട്ടപ്പാടിയുടെ സമഗ്രവികസനം ലക്ഷ്യമിടുന്ന പദ്ധതികൾ നാളെ അഗളിയിൽ മന്ത്രി എ കെ ബാലൻ ഉദ്ഘാടനം ചെയ്യും പട്ടികവർഗ സ്ത്രീകൾക്കായി അപ്പാരൽ പാർക്ക് പരമ്പരാഗത കൃഷി പ്രോത്സാഹനത്തിന് മില്ലറ്റ് വില്ലേജ് പദ്ധതി അട്ടപ്പാടി മോഡൽ റസിഡൻഷ്യൽ സ്കൂളിലെ പ്ലസ് വൺ ബാച്ചുകൾ എന്നിവയ്ക്കാണ് നാളെ തുടക്കമാ വുന്നത് മാവോയിസ്റ്റ് ഭീഷണിയെതുടർന്ന് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ മേഖലയിലെ പൊലിസ് സ്റ്റേഷനുകൾക്ക് ഇന്നു മുതൽ സുരക്ഷ ശക്തമാക്കി എടക്കര വഴിക്കടവ് പൂക്കോട്ടു പാടം കാളികാവ് കരുവാരക്കുണ്ട് സ്റ്റേഷനുകൾക്കാണ് സുരക്ഷ വർധിപ്പിക്കുന്നത്

ഐ മാവോയിസ്റ്റ് നാളെ മുതൽ രക്തസാക്ഷിത്വ വാരാചാരണം സംഘടിപ്പി ക്കുന്ന സാഹചരൃത്തിലാണ് നക്സൽ വിരുദ്ധ സേനയെ വിന്യസിച്ച് സുരക്ഷ ശക്തമാ ക്കുന്നത് കോഴിക്കോട് എറണാകുളം റൂട്ടിൽ കെ എസ്

ടി സിയുടെ ചിൽ ബസ് സർവീസ് ഇന്നാരംഭിക്കും രാവിലെ അഞ്ചു മുതൽ ഓരോ മണിക്കുറിലും എറണാകുളത്തേക്കും തിരിച്ചും സർവീസ് ഉണ്ടായിരിക്കും